സമ്പൂർണ ലോക്ഡൌൺ ആലോചിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പീണറായി വിജയൻ സംസ്ഥാനത്ത് നാളെ ്മുതൽ കൂടിച്ചേരലുകൾ ന് പാടില്ലെന്ന് ഷ്ട്രൈക്കോടതി ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ പകർച്ചവ്യാധി പ്രതിരോധ നിയമപ്രകാരം കേസെടുക്കാൻ നിർദ്ദേശം

കോവിഡ് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച് വോട്ടെണ്ണൽ

മത്സരത്തിൽ പഞ്ചാബ് കിംഗ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലരിനെ നേരിടും പ്രധാനമന്ത്രി യോഗം കോവിഡ് മഹാമാരിയെ നേരിടാൻ സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൃത്യമായി കണ്ടെത്തുകയും അവയ്ക്ക് പരിഹാരം കാണുകയും വേണമെന്ന് പ്രധാനമന്ത്രി കേന്ദ്ര മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയെന്നാണ് കേന്ദ്രമന്ത്രിമാർ കോവിഡ് രണ്ടാം തരംഗത്തെ വിശേഷിപ്പിച്ചത് കോവിഡ് മഹാമാരിയെ നേരിടാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു

തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തമായി ലോക്ഡൌൺ പ്രഖ്യാപിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

തിരഞ്ഞെടുപ്പ് വിജയാഘോഷ പ്രകടനങ്ങളോ ഒത്തുചേരലുകളോ പാടില്ല കർശന നിയന്ത്രണങ്ങൾ പ്പാലിക്കുന്നുണ്ടെന്ന് പൊലീസും ജില്ലാ ഭരണകൂടവും ഉറപ്പുവരുത്തണം ഉത്തരവ് ലംഘിക്കുന്നവ്ർക്കെതിരെ പകർച്ചവ്യാധി പ്രതിരോധ നിയമപ്രകാരം കേസെടുക്കാനും കോടതി നിർദേശമുണ്ട് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടക്കുന്ന മേയ് രണ്ടിന് സമ്പൂർണ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കണം കൂടിച്ചേരലുകൾ ഒഴിവാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആറ് ഹർജികളാണ് ഹൈക്കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്

ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത കഴിഞ്ഞ ഒക്ടോബറിനെ അപേക്ഷിച്ച് ഇരട്ടിയിലധികമാണ് ഏപ്രിലിൽ രേഖപ്പെടുത്തിയത്

കമ്പനിക്ക് സമീപത്തെ ചവറ സർക്കാർ ഹയർസെക്കൻ്ററി സ്കൂളിൽ ആരോഗ്യവകുപ്പുമായി ചേർന്നാണ് ആശുപത്രി തയ്യാറാക്കുന്നത്

രണ്ടാമത്തെ ഡോസ് വാക്സിനെടുക്കാൻ സമയമായവർ വിവരം തദ്ദേശഭരണ സ്ഥാപനത്തിന്റെ ഹെൽപ് ഡെസ്ക്കിലോ പ്രദേശത്തെ ആരോഗ്യപ്രവർത്തകരെയോ അറിയിക്കണം ഇതനുസരിച്ച് വാക്സിൻ രണ്ടാമത്തെ ഡോസ് എടുക്കാൻ അർഹരായവരുടെ പട്ടിക തയാറാക്കും ലേബർ കമ്മീഷണർ സംസ്ഥാനത്ത് കോവിഡ് രണ്ടാം തരംഗം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പൊതു സ്വകാര്യമേഖല നിർമ്മാണ മേഖല തോട്ടം കയർ കശുവണ്ടി മത്സ്യസംസ്കരണ മേഖല സ്ഥാപനങ്ങൾ ഫാക്ടറികൾ എന്നിവയ്കളിട്ട് പ്രവർത്തനത്തിനായി പുതിയ മാർഗ നിർദേശങ്ങൾ ലേബ്ലർ കമ്മീഷണർ പുറത്തിറക്കി നിലവിലെ സാഹചരൃത്തിൽ തൊഴിലു്ടമകളും തൊഴിലാളികളും സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളാണ് സർക്കുലറിലുള്ളത്

ഇൻഫോപാർക്ക് ഉൾപ്പെടെയുള്ള ഐ ടി സ്ഥാപനങ്ങളിലും സ്റ്റാർട് അപ് സ്ഥാപനങ്ങളിലും ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സൌകര്യമെരുക്കണം

തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുജനങ്ങളും എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്

കോവിഡ് സാഹ ചര്യത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെണ്ണലിനുളള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുളളത്

ഇത്തവണ സാമൂഹ്യ അകലം ഉറപ്പാക്കാൻ ഒരു ഹാളിൽ ഉളള കൌണ്ടിംഗ് ടേബിളുകളുടെ എണ്ണം ഏഴായി കുറച്ചിട്ടുണ്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിഷന്റെ നിരീക്ഷകരുടെ സാന്നിദ്ധ്യത്തിലാണ് വോട്ടെണ്ണൽ

ന്യൂസ് ഡെസ്ക് ആകാശവാണി മഴ തിരുവനന്തപുരം കൊല്ലം ഇടുക്കി എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ ശക്തമായ കാറ്റിന് സാധൃത